എൻ

നീറ്റ് പരീക്ഷകൾ മാറ്റമില്ലാതെ നടക്കും ന് കൂടതൽ പരീക്ഷാകേന്ദ്രങ്ങൾ സജ്ജമാക്കുമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി

അന്വേഷണത്തിന് വിദഗ്ധ സംഘം ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം

രക്ഷാസമിതി അംഗ്ലമല്ലാത്ത് പാകിസ്ഥാൻ എങ്ങനെ യോഗത്തിൽ പങ്കെടുത്തു ൃഷ്എന്ന് ്ഇന്ത്യ ആരാഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരവാദ്യത്തീന് എന്നും പ്രോത്സാഹനം നൽകിയിട്ടുള്ള പാക്കിസ്ഥാൻ തങ്ങൾ ഭീകരവാദത്തിന് ഇരയാണെന്ന വ്യാജപ്രചരണം ആണ് ഇപ്പേങറ്റ നടത്തുന്നതെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സ്ഥിരം പ്രതിനിധി കുറ്റപ്പെടുത്തി നൂറുതവണ ആവർത്തിച്ചാലും നുണ സത്യമായി മാറില്ല എന്നും ഇന്ത്യൻ പ്രതിനിധി മുന്നറിയിപ്പ് നൽകി

നിലവിൽ ഏഴ് ലക്ഷത്തിലേറെ പേരാണ് ചികിത്സയിലുള്ളത്

പരിശോധിനെ കിറ്റുകൾ രാജ്യത്തുതന്നെ ഉല്പാദിപ്പിക്കുന്നതിലൂടെ ചെലവും ഗണ്യമായി കുറഞ്ഞതായി ഐ സി എം ആർ അറിയിച്ചു

ഘോഷയാത്രകളും മറ്റു പ്രകടനങ്ങളും നിരോധിച്ചതായും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അവനിഷ് കുമാർ അവസ്തി പുറത്തിറക്കിയ വ്യക്തമാക്കിയിട്ടുണ്ട് ഉത്തരവിൽ ഉത്തർപ്രദേശിൽ സാമുദായിക ലഹള ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി അഞ്ച് പേരിൽ കൂടുതൽ കൂട്ടം ചേരുന്നതിനാണ് വിലക്ക്

ഇ ഇ മെയിൻ നീറ്റ് പരീക്ഷകൾ മുൻനിശ്ചയിച്ചു പ്രകാരം തന്നെ നടക്കും ഇതിന്റെ ഭാഗമായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം ഗണ്യമായി വർധിപ്പിച്ചു

ഇ ഇ

ഇ ഇ

ഇ ഇ

തൊഴിൽ ദിനങ്ങളിലും വർധനയുണ്ടായിട്ടുണ്ട്

ലോക് ഡൌണിനെ തുടർന്ന് കുടിയേറ്റ തൊഴിലാളികൾ സ്വദേശത്തേക്ക് മടങ്ങിയതോടെ കൂടിയാണ് കേന്ദ്രസർക്കർ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയത്

ആദ്യ നാലു മാസങ്ങൾ കൊണ്ടു തന്നെ അനുവദിച്ച തുകയുടെ പകുതിയോളം വിനിയോഗിക്കപ്പെട്ടതായും ക്രിസിൽ ചൂണ്ടി കാട്ടുന്നു

ജെയ്ഷെ മുഹമ്മദ് തലവൻ മൌലാന മസൂദ് അസർ സഹോദരങ്ങളായ അബ്ദുൾ റാഫ് അസ്ഗർ അ അമർ അൽവി ഉമർ ഫാറൂഖ് എന്നിവരാണ് മുഖ്യപ്രതികൾ പുൽവാമയിൽ നിന്നും അറസ്റ്റിലായവരും പ്രതികളാണ് ഏഴുപേരെ കൂടി എൻ ഐ എ ഈ കേസിൽ അറസ്റ്റു ചെയ്തിരുന്നു

ഏഴു വർഷം പഴക്കമുള്ള അഞ്ച് നില പാർപ്പിട സമുച്ചയമാണ് തകർന്ന് വീണത്

ഇതോടൊപ്പുക ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തും ഇതിനായി എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കാനും തീരുമാനിച്ചു

വനിതാ സമത്വ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവദേക്കർ രാജ്യത്തെ മുഴുവൻ വനിതകൾക്കും ആശംസകൾ നേർന്നു

ദൽവാസ് പീത എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് ശൈത്യ കാലത്തു ഉൾപ്പെടെ ജമ്മുവിൽ നിന്ന് കശ്മീർ താഴ്വരയിലേക്ക് പോകാനുള്ള ഏക മാർഗമാണിത്

കൂടാതെ റോഡുകൾ പാലങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾക്കും വെള്ളപ്പൊക്കത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്

പുതിയ മേഖലകളിലെ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സഹകരണം സംയുക്ത പ്രസ്താവന യോഗം പുറത്തിറക്കിയതായി ചൈനീസ് ഔദ്യോഗിക മാധ്യമം അറിയിച്ചു

ബോളറായി ഇംഗ്ലീഷ് താരം പാകിസ്ഥാനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ അസ്ഹർ അലിയെ പുറത്താക്കിയാണ് ആൻഡേഴ്സൺ ചരിത്രനേട്ടം സ്വന്തമാക്കിയത്